ലോകത്ത് ഏറ്റവും വേഗതയിൽ കോവിഡ് വാക്സിൻ യജ്ഞം നടത്തുന്ന രാജ്യമായി ഇന്ത്യ മാറി

വാക്സിൻ യജ്ഞം പൂർണ്ണമായും ഫലൂം കണ്ടെത്താൻ ജനങ്ങളുടെ പങ്കാളിത്തം ആവശ്യപ്പെട്ട് പ്ലൂധാനമന്ത്രി

കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ വേനൽമഴ തുടരുമെന്ന് കാലാവസ്ഥാ സൂചന

തോൽപ്പിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്

വാക്സിൻ ഉത്സവത്തിലൂടെ രാജ്യം ലോകത്ത് തന്നെ ഏറ്റവും ബൃഹത്തായ വാക്സിൻ യജ്ഞത്തിന്റെ ഭാഗമാവുകയാണ്

യജ്ഞത്തിന്റെ ഭാഗമായി നാല് ലക്ഷം പേർക്ക് വാക്സിൻ നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പറഞ്ഞു

മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും വാക്സിൻ ഉത്സവത്തിന്റെ ഭാഗമായുള്ള വാക്സിൻ കുത്തിവയ്പ്പിന് മികച്ച പ്രതികരണമാണുള്ളത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

വാക്സിൻ എടുക്കുന്നതിന്റെ ഭാഗമായി ഓരോ പൌരനും മുഖ്യമായും നാല് തത്വങ്ങൾ പാലിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു വാക്സിൻ സ്വയം സ്വീകരിക്കുക വാക്സിൻ എടുപ്പിക്കുക സ്വയം സുരക്ഷിതരാകുക രോഗബാധിതനായാൽ മൈക്രോ ്കണ്ടയ്ൻമെന്റ് സോൺ രൂപീകരിക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചത്

സ്വയം സുരക്ഷിതനാകുന്നതിനോടൊപ്പം രോഗത്തെ ക്കുറിച്ച് മറ്റുള്ളവർക്ക് അവബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കണം ഒരു വൃക്തി കോവിഡ് ബാധിതനായാൽ ഒരു മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ രൂപീകരിക്കാൻ അയാളുടെ കുടുംബവും സമൂഹവും മുന്നോട്ടുവരണമെന്നും പ്രധാനമൂന്തി പറഞ്ഞു

ഇതിനകം പ്രപ്പതിരോധ കുത്തിവയ്പ്പ് എടുത്ത വൃക്തികൾ മറ്റുള്ളവർക്കീട്ടിയിൽ വാക്സിനെക്കുറിച്ച് അവബോധം സൃഷ്ടിച്ച് വാക്സിൻ ഉത്സവം സംഘടിപ്പിക്കണമെന്നും ശ്രീ ജിതേന്ദ്രസിങ് പറഞ്ഞു

കേന്ദ്ര ആരോഗ്യ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ആരോഗൃ സെക്രട്ടറി രാജേഷ് ഭൂഷൺ നിർദ്ദേശം നിൽകീയത്

റായ്പൂർ ഉൾപ്പെടെ നാല് ജില്ലകളിൽ ആശുപത്രികളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കേന്ദ്രം സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകി

വരും ദിവസങ്ങളിൽ ആവശൃം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു റെംഡെസിവിറിന്റെ എല്ലാ ആഭ്യന്തര നിർമ്മാതാക്കളും അവരുടെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് കൃത്യമായി പരിശോധിക്കാനും ദുരുപയോഗം ഒഴിവാക്കാനും കരിഞ്ചന്ത തടയാനും ഫലപ്രദമായ മറ്റ് നൂട്പ്പിടികൾ സ്വീകരിക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടു്ണ്ട് സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിമാർ അതത് സംസ്ഥാനൂങ്ങളില്ലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും ഡ്രഗ് ഇൻസ്പെക്ടർമാരുമായി ഇത് അവലോകനം ചെയ്യും റെംഗ്ലീഡ്സ്വിറിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഫാർമസ്യൂട്ടിക്കൽ വകുപ്പ് ആഭ്യന്തര നിർമ്മാതാക്കളുമായി ബ്സ്റ്റ്പ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു

എല്ലാ ആരോഗൃ പ്രവർത്തകർക്കും കുത്തിവയ്പ്പ് നടത്തണമെന്നും കിടക്കകളുടെ ശേഷി ഉയർത്തേണ്ടതുണ്ടെന്നും കോവിഡ് കർമ്മസേനയുമായുള്ള ചർച്ചയിൽ ശ്രീ താക്കറെ നിർദ്ദേശിച്ചു

കഴിഞ്ഞ ദിവസമാണ് സ്പീക്കർക്ക് കോവിഡ് സ്ക്കിർീകരിച്ചത് ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആദ്ദേഹത്തെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് രോഗം സ്ഥിരീകരിച്ചതായി സ്പീക്കർ ഫേസ്ബുക്കിലൂട്ട് ്ആറിയിച്ചത്

രാജ്യത്തെ പ്രതിരോധ കുത്തിവയ്പ്പിനായി ലഭ്യമായിട്ടുള്ള വാക്സിനെക്കുറിച്ച് ചൈനയുടെ രോഗനിയന്ത്രണ കേന്ദ്രം ആദ്യമായിട്ടാണ് പരസ്യ പ്രസ്താവന നടത്തുന്നത് ഇപ്പോൾ ചൈനയിൽ ലഭ്യമാകുന്ന വാക്സിനുകൾ ഫലപ്രാപ്തി കുറഞ്ഞവയാണെന്ന് സി ഡി സി ഡയറക്ടർ ഗാവു ഫു നേരത്തെ ഒരു സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു

എന്നാൽ ചാർട്ടേഡ് ചരക്ക് ആംബുലൻസ് വിമാനങ്ങൾക്കും മറ്റ് പ്രത്യേക വിമാനങ്ങൾക്കും വിലക്കുണ്ടാവില്ലെന്ന് വ്യോമയാന അതോറിറ്റി ചെയർമാൻ എയർ വൈസ് മാർഷൽ എം

ബാറ്റിങ്ങിനിറങ്ങിയ സൺറൈസേഴ്സിന്റെ തുടക്കം തകർച്ചയോടെയായിരുന്നു